യോഗ്യത നേടി

തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി പ്രകടന പത്രികയെയും ഉൾപ്പ്ടുത്തിയാണ് കമ്മീഷന്റെ ഉത്തരവ്

ഭാവി തെരഞ്ഞെടുപ്പുകളിലും ഈ നിയന്ത്രണം പെരുമാറ്റചട്ടത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു

ജെ പി കേന്ദ്ര തെരെഞ്ഞെടുപ്പ് കമ്മിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു

ജെ പി ആസ്ഥാനത്ത് ഇന്നലെ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ എന്നിവർ പങ്കെടുത്തു

പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് വിളിച്ചുചേർക്കുന്ന കോർകമ്മിറ്റി യോഗത്തിനുശേഷം ആദ്യ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേരും

ജെ

ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന് പാർട്ടിയുടെ കേന്ദ്ര തെരെഞ്ഞടുപ്പ് കമ്മിറ്റി യോഗമാണ് പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് അരുണാചൽപ്രദേശിൽ രണ്ടും ഛത്തീസ്ഗഡിൽ അഞ്ചും കേരളത്തിൽ പന്ത്രണ്ടും ഉത്തർപ്രദേശിൽ ഏഴും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു സ്ഥാനാർത്ഥിയുമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നും മൂന്ന് സിറ്റിംഗ് എം

തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് ശശിതരൂരും മാവേലിക്കര കെ

വയനാട് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ തീരുമാനമായിട്ടില്ല

സിറ്റിംഗ് എം പി പി മിഥുൻ റെഡ്സി രാജംപേട്ട മണ്ഡലത്തിൽ ജനവിധി തേടും ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെല്ലാം പുതുമുഖങ്ങളാണ്

ജെ

നേതാക്കളുമായി ഇന്നലെ ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കുശേഷമാണ് തീരുമാനം ബാർപേട്ട കലിയബോർ ധുബ്രി എന്നീ മണ്ഡലങ്ങളിലാണ് എ ജി

സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എ

ചീഫ് സെക്രട്ടറി ബി

ആർ സുബ്രഹ്മണ്യൻ ആഭ്യന്തര സെക്രട്ടറി ഷലീൻ കാബ ഡി ജി പി ദിൽബാഗ് സിംഗ് എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും ഇരുകൂട്ടരും ചർച്ച നടത്തി

വിശദാംശങ്ങളുമായി ലീൻസ വോയിസ് മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രഹിം മുഹമ്മദ് സോളിഹ് പാർലമെന്റ് സ്പീക്കർ ഖാസിം ഇബ്രാഹിം മാലദ്വീപ് വിദേശകാര്യ മന്ത്രി അബ്ദുള്ള ഷാഹിദ് എന്നിവരുമായി ശ്രീമതി സുഷമസ്വരാജ് കൂടിക്കാഴ്ച നടത്തും വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്താൻ സംയുക്ത മന്ത്രിതല യോഗത്തിലും പങ്കെടുക്കും നിലവിലുള്ളതും ഭാവിയിലെ കേന്ദ്രമന്തി സഹകരണം സംബന്ധിച്ചും ഇരു ഗവൺമെന്റുകളും ചർച്ച നടത്തുമെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് പറഞ്ഞു ആരോഗ്യം വികസന മേഖല ജനങ്ങളുമായുള്ള ആശയവിനിമയം വിപുലീകരിക്കൽ തുടങ്ങിയ വിഷയങ്ങളാകും ചർച്ച ചെയ്യുക ഇബ്രാഹീം മുഹമ്മദ് സോളിഹിന്റെ നേതൃത്വത്തിൽ മാലദ്വീപിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയശേഷം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സോളിഹിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായി പങ്കെടുത്തിരുന്നു

നഗരത്തിലെ സി

രംഗവായ ഗ്രാമത്തിലെ ബദ്രെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു സമീപ പ്രദേശത്തെ വനമേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിനെ തുടർന്നാണ് അറസ്റ്റ്

വിശദാംശങ്ങളുമായി ലിൻസ ആക്രമണ ദൃശ്യം ഒര്ലീവ്സ്ട്രീം നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ന്ൽകാൻ ഫേസ്ബുക്ക് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഷെറിൻ സാന്റ്ബെർഗിനോട് ആവശ്യപ്പെട്ടതായി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ജസീന്ത ആഡൻ

സംഭവത്തിന് ഏതാനും മിനിട്ടുകൾക്ക് മുമ്പ് ആക്രമണം സംബന്ധിച്ച് ഒരു കുറിപ്പ് തന്റെ ഓഫീസിന് ലഭിച്ചിരുന്നതായി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി അറിയിച്ചു ഭീകരവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ തോക്ക് കൈവശം വയ്ക്കുന്നത് സംബന്ധിച്ച നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് ജസീന്ത ആർഡെൻ പറഞ്ഞു

ഇന്നലെ ജയപുരയുടെ പ്രവിശ്യാ തലസ്ഥാനമായ സെന്റാനിയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലൂണ്ട്ടിട്ട്യി് നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായും പ്പ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും ദേശീയി ദ്ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു

ചാമ്പ്യൻഷിപ്പിൽ നാലാം സ്ഥാനമാണ് ഇർഫാന് ലഭിച്ചത് സെപ്തംബറിൽ ദോഹയിൽ നടക്കുന്ന ഐ എ

ഇന്നലെ നടന്ന സെമിഫൈനലിൽ ചൈനയുടെ ഒളിമ്പിക് ചാമ്പ്യൻ ചെൻ ലോങ്ങിനെയാണ് സായ് പ്രണീത് കീഴടക്കിയത്

ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നത് ഇസ്താമാബാദ് അവസാനിപ്പിക്കണമെന്ന് ആഗോള സമൂഹം ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് സുരക്ഷിത സ്ഥാനം ഒരുക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു

സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന എക്സ്സിക്യുട്ടീവ് കമ്മിറ്റിയുടെ നിർദ്ദേശ പ്രകാരമാണ് തീരുമാനം